തലമുറകളെ വഴിതെറ്റിക്കുന്ന വളച്ചൊടിച്ച് ചരീത്രം മാരകാ യുധങ്ങളെക്കാൾ അപകടകരമാണെന്ന് ഗവർണർ പി സദാ ശിവം

മൂന്ന് വർഷത്തിനകം വിനോദ്സഞ്ചാരമേഖലയിൽ അഞ്ച്ല ക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ യുവതിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വൈദികൻ ഫാ

ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് എട്ട് വിക്കറ്റ് ജയം സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ കൃഷി അടിസ്ഥാനമാക്കി സൂക്ഷ്മ സ്ഥാപനങ്ങൾ വികസിപ്പിക്കാൻ നബാർഡ് നടപടി തുട ങ്ങി ആലപ്പുഴ ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിലാണ് ആദ്യ ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് പച്ചക്കറി കൃഷി ഓർഗാനിക് ഫാർമിംഗ് കോഴി വളർത്തൽ സുഗന്ധ വൃജ്ഞനത്തിന്റെ മൂല്യ വർധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ സൂക്ഷ്മ സ്ഥാപനങ്ങളാണ് തുട ങ്ങുകയെന്ന് നബാർഡ് ചീഫ് മാനേജർ ആർ ശ്രീനിവാസൻ തിരു വനന്തപുരത്ത് അറിയിച്ചു

തലമുറകളെ വഴിതെറ്റിക്കുന്ന വളച്ചൊടിച്ച ചരിത്രം മാരകായുധ ങ്ങളേക്കാൾ അപകടകരമാണെന്ന് ഗവർണർ പി സദാശിവം പറ ഞ്ഞു കേരള ചരിത്രഗവേഷണ കൌൺസിലിന്റെ ആഭിമുഖൃത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പണ്ഡിത ആദരം പരിപാടിയിൽ ചരിത്രകാരൻമാരായ പ്രൊഫ ടി കെ രവീന്ദ്രൻ പ്രൊഫ എം ജി എസ് നാരായണൻ പ്രൊഫ കെ എൻ പണിക്കർ എന്നിവരെ ആദ രിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല വിദ്യാർത്ഥികളും സ്കൂൾതലത്തിലെ പ്രിത്രപഠനത്തിനു ശേഷം അധികാരതാത്പര്യങ്ങൾക്കുവേണ്ടി ചരിത്രം ്വളച്ചൊടിക്കു ന്നവരുടെ വ്യാഖ്യാനങ്ങൾ മനസിലാക്കി ജീവിക്കേണ്ടിവരുന്നു വെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര വാർത്താവിതരണക്ട്രക്ഷ് പണ യുവജനകാര്യ സ്പോർട്സ് മന്ത്രി കേണൽ രാജ്യവർധൻസിംഗ് റാത്തോഡ് ഇന്ന് കൊച്ചി സന്ദർശിക്കും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകു പ്പിലേയും യുവജനകാര്യ സ്പ്പോ്ർട്സ് വകുപ്പിലേയും ഉദ്യോഗസ്ഥ രുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും സ്വകാര്യചാന്ൽ സംഘടിപ്പിക്കുന്ന ന്യൂസ് കോൺക്ലേവിലും മന്ത്രി പങ്കെടുക്കും മൂന്നുവർഷത്തിനുളളിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാരമേഖ ലയിൽ അഞ്ചു ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടി ക്കാനാണ് ഗവ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ പറഞ്ഞു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആന്റ് ട്രാവൽ സ്റ്റഡീസ് ആരംഭിച്ച കേരള എച്ച് ആർ പോർട്ടൽ തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദക്ഷിണകേരളത്തിലും മധൃ തിരുവിതാംകൂറിലും മാത്രമായി ചുരു ങ്ങിയിരിക്കുന്ന കേരള ടൂറിസം ഇപ്പോൾ മലബാർ മേഖലയിലും പുതിയ പദ്ധതികളുമായി ചുവടുറപ്പിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു കാസർകോഡുമുതൽ തിരുവനന്തപുരം വരെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും വികസിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരി ച്ചുവരികയാണെന്നും കടകംപളളി അറിയിച്ചു കുമ്പസാര രഹസ്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി യു വതിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വൈദികൻ ഫാ

ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്ത വൈദികനെ ചോദൃംചെയ്യലിന് ശേഷം വൈകിട്ട് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയാണ് റിമാന്റ് ചെയ്തത്

ജോബ്മാത്യുവിനെ പത്തനംതിട്ട ജില്ലാ ജയി ലിലേക്ക് മാറ്റി കേസിലെ മറ്റുപ്രതികൾക്കായി അന്വേഷണസംഘം തിരച്ചിൽ തുടരുകയാണ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ട് അന്വേ ഷണസംഘം ഇന്നലെ കണ്ണൂരിൽ രണ്ടിടങ്ങളിൽ തെളിവെടുപ്പ് നട ത്തി ജലന്ധർ രൂപതയ്ക്ക് കീഴിലെ പ്രിയാരത്തെയും മാതമംഗല ത്തെയും മഠങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇവിടെ സന്ദർശിച്ചിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ്

മൂവ്വായിരത്തോളം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്

സംസ്ഥാനത്തിന്റെ പലഭാഗങ്ങളിലും മഴയുടെ തീവ്രത കുറ ഞ്ഞെങ്കിലും അടുത്ത വ്യാഴാഴ്ച വരെ ശക്തമായ മഴക്ക് സാധ്യത യുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം നൽകുന്ന മുന്നറി യിപ്പ്

വയനാട് ജില്ലയിലെ വൈത്തിരി മാനന്തവാടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളജുകളും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളു കളും ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാകല ക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു

ഇതുവരെ എട്ട് പേർക്ക് ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട്

കണ്ണൂരിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകുന്നേര മുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടാ യി കല്യാശ്ശേരിയിൽ മരം റോഡില്ലേക്ക് കടപുഴകി വീണു ഇരിട്ടി വളവുപാറ റോഡിൽ കീഴൂർ കുന്നിനടുത്ത് മണ്ണിടിഞ്ഞ് വാഹന ങ്ങൾ വഴിതിരിച്ചുവിട്ടു കണ്ണൂർ മൈതാനപള്ളിയിൽ ശക്തമായ കടലാക്രമണത്തിൽ ്നൂറോളം വീടുകളിൽ വെളളം കയറി മന്ത്രി രാമചന്ദ്രൻകടന്നപ്പളളി സ്ഥലം സന്ദർശിച്ചു

ജില്ലയുടെ മലയോർ ്മേഖലയിൽ ശക്തമായ കാറ്റിൽ വാഴ ഏലം ജാതി വിളകൾ കാ്റ്റിൽ ഒടിഞ്ഞു വീണു കല്ലാർകുട്ടി ലോവർപെരിയാർ മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടർ തുറന്നു

ഇംഗ്ലണ്ടിനെതിരായ ആദ്യഏകദിനത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം

രണ്ടാംമത്സരം നാളെ നടക്കും ലോകകപ്പ് ഫൂട്ബോളിലെ കളിക്കാരിലാരും ഉത്തേജകമരുന്ന് ഉപയോഗിച്ചതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് ഫിഫ മോസ്കോയിൽ അറിയിച്ചു മൂവ്വായിരത്തിലേറെ പരിശോധനകൾ നടത്തിയതിൽ ഒന്നുപോലും പോസിറ്റീവ് ആയിരുന്നില്ലെന്നും ഫിഫ വൃക്തമാക്കി

ലോക അത്ല റ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രാക്കിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അസം സ്വദേശിയായ ഹിമ സംസ്ഥാനത്തെ എല്ലാ ഗതാഗത സംവിധാനങ്ങളും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഗവൺമെൻറിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജി

കുന്നത്തൂർ മണ്ഡലത്തിലെ ചിറ്റുമല മാലുമ്മേൽ റോഡ് നവീകരണത്തിന്റെ ഉദ്ഘാടനം കാരാളിമുക്കിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മഴയിൽ തകരാത്ത റോഡുകളാണ് ഇപ്പോൾ നിർമിക്കുന്നത് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് റോഡ് നിർമിക്കുന്നത് ദീർഘകാലം നിലനിൽക്കുന്ന റോഡുകൾ മാത്രമാകും ഇനി ഉണ്ടാവുക എന്നും മന്ത്രി വ്യക്തമാക്കി മൂന്ന് വർഷങ്ങൾക്കുളളിൽ സംസ്ഥാനത്ത് പരമാവധി ചെറു കിട വൈദ്യുത പദ്ധതികൾ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു പത്തനംതിട്ട കുമ്പനാട് ഇലക്ട്രിക് ഓഫീസ് മന്ദിര ത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സൌരോർജ്ജ ഉൽപാദനത്തിന് ജനങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികൾക്ക് ഈ വർഷം മുതൽ സ്പിൽഓവർ ഉണ്ടാവില്ലെന്ന് മന്ത്രി ഡോ

ഓരോ വർഷവും അനുവദിക്കുന്ന തുക അതത് വർഷം തന്നെ ചെലവഴിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ തൊഴിൽ അന്വേഷകർക്ക് മികച്ച പരിശീലനം ഉറപ്പാക്കുകയാണ് ഗവൺമെന്റിന്റെയും വ്യവസായ പ്രിശീലനവകു പ്പിന്റെയും ലക്ഷ്യമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു

പ്രതി പക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കോതമംഗലം ബ്ലോക്കിൽ ആരംഭിച്ച ഫെഡറേറ്റഡ് മാർക്കറ്റ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇടനിലക്കാരില്ലാതെ കർഷ കർക്ക് തങ്ങളുടെ ഉത്പ്പന്നങ്ങൾ വിറ്റഴിക്കാനുളള വിപണികൾ ബ്ലോക്ക്തലങ്ങളിലും പഞ്ചായത്തുകളിലും ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഹയർസെക്കന്ററി സ്കൂളുകളിലെ ക്ലാസ് മുറി കളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് വിലക്കി ഹയർ സെക്കന്ററി ഡയറക്ടർ സർക്കുലറിറക്കി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച സ്കൂളുകളിൽ ക്സാസ് മുറികളിൽ നിന്ന് ഇവ നീക്കം ചെയ്യണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസ് മുറികളിൽ കൃാമറ സ്ഥാപിക്കുന്നിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദേശം നിലവിലുണ്ടെന്നും സർക്കുലറിൽ വൃക്തമാക്കി അവനവനെക്കുറിച്ച് ചിന്തയിൽ നിന്നും ഔദ്യോഗിക തീരുമാനം ഉണ്ടാകുമ്പോഴാണ് അഴിമതി സംഭവിക്കുന്ന തെന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ

പ്രേമചന്ദ്രൻ എം

യുടെ എക്സല്ലൻസ് അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം ന്ടത്തുക്യായിരുന്നു അദ്ദേഹം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം ന്ദേടിയ സ്വുശ്രീ എസ് മാധവികുട്ടി എം

സദ്ദാം നവാസ് എന്നിവർക്ക് എൻ

പ്രേമചന്ദ്രൻ എം

യും ജയകുമാറും ചേർന്ന് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു എറണാകുളം മഹാരാജാസ് കോളജിലെ അഭിമന്യൂ വധ ക്കേസ് പ്രതികളെ പ്പിടികൂടാനാവാത്തത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് ആർഎസ്എസ് നേതാവ് പി ഗോപാലൻകുട്ടി പറഞ്ഞു കണ്ണൂർ പയ്യന്നൂരിൽ പി കെ രാമചന്ദ്രൻ ബലിദാനദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരൂർ പ്രിയാപുരത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് തെങ്ങിലി ടിച്ച് യുവാവ് മരിച്ചു പറവണ്ണ അരിക്കാഞ്ചിലം സ്വദേശി ബാസി ത്താണ് മരിച്ചത് പൊന്നാനി മറൈൻ മ്യൂസിയത്തിന്റെ ഒന്നാംഘട്ട നിർമാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി നവംബറിൽ ഉദ്ഘാടനം ചെയ്യാൻ മലപ്പുറത്ത് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി സിംഗപ്പൂരിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ മാതൃകയിൽ ടൂറിസം വകുപ്പാണ് മറൈൻ മ്യൂസിയം നിർമിക്കുന്നത് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവ എംപ്ലോയീസ് ആന്റ് വർക്കേഴ്സ് സംസ്ഥാന കൺവെൻഷൻ കൊച്ചിയിൽ സിഐടിയു സംസ്ഥാന ജന സെക്രട്ടറി എളമരം കരീം എംപി ഉദ്ഘാടനം ചെയ്തു പങ്കാളിത്ത പെൻഷൻപദ്ധതി ഉപേക്ഷിക്കു ക മിനിമം ശമ്പളം വർധിപ്പിക്കുക തുടങ്ങി പത്ത് ആവശ്യങ്ങളു ന്നയിച്ച് കേന്ദ്ര ഗവ